സാക്ഷാത്കരിക്കുന്നാതിലേക്കുള്ള ചുവടുവയ്പ്പാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി മധ്യപ്രദേശിൽ പി എം

വൈ പദ്ധതിയിൽ നിർമ്മിച്ചു പ്രീടുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു

അസരങ്കയും നവോമി ഒസാക്കയും ഇന്ന് നേർക്ക് നേർ പുരുഷ സിംഗിൾസ് ഫൈനലിൽ അലക്സാണ്ടർ സ്വരേവും ഡൊമിനിക് തീമും ഏറ്റുമുട്ടും

മധ്യപ്രദേശിൽ പി എം എ

ഇന്ന് വീട് ലഭിച്ച ഓരോരുത്തരുടെയും സന്തോഷവും ആത്മവിശ്വാസവും തനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു ഗൃഹപ്രവേശനം നടത്തുന്ന കുടുംബങ്ങളുമായി ശ്രീ മോദി സംവദിച്ചു പരിപാടിയിൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ മധ്യപ്രദേശ് ഗവർണർ ഗ്രാമപഞ്ചായത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു

പാരാദീപ് ഹൽദിയ ദുർഗാപുർ പൈപ്പ്ലൈൻ ഓഗ്മെന്റേഷൻ പ്രോജക്ടിന്റെ ദുർഗാപുർ ബാങ്ക ഭാഗവും രണ്ട് എൽ

പ്പെട്ടോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിന്റെ കീഴിലുള്ള പ്പൊത്തുമേഖലാ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ഓയിൽ എച്ച്

സി എൽ എന്നിവയാണ് ഇവ കമ്മീഷൻ ചെയ്യുന്നത് പ്രടങ്ങിൽ ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ പങ്കെടുക്കും

പ്രതിദിനം ഏറ്റവും കൂടുതൽ പരിശോധനകൾ നടത്തുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ

പരിശോധനകളുടെ എണ്ണം വർധിപ്പിക്കുകയാണ് എങ്കിലും അതിൽ എട്ടര ശതമാനം പേരിൽ മാത്രമാണ് രോഗം സ്വീകരിക്കപ്പെടുന്നത്

മഹാരാർഷ്ട ആന്ധ്രപ്രദേശ് കർണാടക എന്നീ സംസ്ഥാനങ്ങളില്പെ ് കോ്പിഡ് രോഗികളുടെ എണ്ണം പ്രതിദിനം ഉയരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി നരേന്ദ്ര മോഹൻ ഏറ്റവും കൂടുതൽ രോഗബാധിതർ ഉള്ള മഹാരാഷ്ട്രയിൽ ആകെ രോഗബാധിതരുടെ എണ്ണം പത്തു ലക്ഷം കടന്നു

ആന്ധ്രപ്രദേശിലും കർണാടകയിലും കഴിഞ്ഞദിവസം പതിനായിരത്തോളം പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്

ഒരു ലക്ഷത്തോളം പേരാണ് ഇരു സംസ്ഥാനങ്ങളിലും നിലവിൽ ചികിത്സയിലുള്ളത് തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസം അയ്യായിരത്തിലധികം പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു

രാജ്യത്തു കോവിഡ് ബാധിച്ച് ചികിത്സയിൽ ഉള്ളവരുട്ടെ എണ്ണം ഇതുവരെയുള്ള ആകെ കോവിഡ് ബാധിതരുടെ ് എണ്ണത്തിന്റെ നാലിൽ ഒന്നാണെന്ന് സർക്കാർ വ്യക്തമാക്കി

വൃാപകമായ പരിശോധന നേരത്തെയുള്ള രോഗ നിർണയം കാര്യക്ഷമമായ ചികിത്സ എന്നിവയിൽ അധിഷ്ഠിതമായ കോവിഡ് നിയന്ത്രണ രീതികളാണ് രാജ്യത്ത് മരണനിരക്ക് കുറയ്ക്കാൻ സഹായകമായത് എന്ന് മന്ത്രാലയം വ്യക്തമാക്കി

താനുമായി അടുത്തിടപഴകിയിട്ടുള്ള എല്ലാവരും സ്വയം നിരീക്ഷണത്തിൽ കഴിയണമെന്നും പരിശോധനക്ക് വിധേയരാകണം എന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു

കേരളത്തിലെ കോവിഡ് രോഗബാധ മൂന്നാം ഘട്ടം കടന്ന സാഹചര്യത്തിൽ ക്ലസ്റ്റർ സ്ട്രാറ്റജി ആവിഷ്ക്കരിച്ച് രോഗ നിയന്ത്രണത്തിന് സാധിച്ചു

അർജന്റീന പെറു സ്പെയിൻ റഷ്യ എന്നിവിടങ്ങളിലും രോഗികളുടെ കോവിഡ് എണ്ണം പെരുകുകയാണ്

തിങ്കളാഴ്ച ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ ് ഭാഗമായാണ് സഭാംഗങ്ങളോട് കോവിഡ് പരിശോധന് നടത്താൻ നിർദ്ദേശിച്ചത് സമ്മേളനത്തിനായി പാർല്മെന്റ് മന്ദിരത്തിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകാവുന്ന അസൌക്കർൃങ്ങൾ ഒഴിവാക്കാൻ അംഗങ്ങളുടെ പരിശോധനാഫലം നിശ്ചയിക്കപ്പെട്ട ഇ മെയിൽ വഴി മുൻകൂട്ടി രാജ്യസഭ സെക്രട്ടേറിയറ്റിലേക്ക് അയക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്

റഷ്യൻ താരം ഡാനിയൽ മെദ്മദേവിനെ സെമിയിൽ പരാജയപ്പെടുത്തിയാണ് ഡോമിനിക് തീം ഈ വർഷത്തെ തന്റെ രണ്ടാമത്തെ ഗ്രാൻസ്താം ഫൈനൽ പ്രവേശനം നേടിയത്

ഇന്നു നടക്കുന്ന വനിത സിംഗിൾസ് ഫൈനലിൽ ബലാറസിന്റെ വിക്ടോറിയ അസരങ്കയും ജപ്പാന്റെ നവോമി ഒസാക്കയും ഏറ്റുമുട്ടും തന്റെ ഇരുപത്തിനാലാമത് ഗ്രാൻഡ്സ്താം കിരീടത്തിനായി ഇറങ്ങിയ സെറീന വിലൃംസിനെ ആണ് സെമിയിൽ അസരങ്ക പരാജയപ്പെടുത്തിയത്

ജനറൽ മാനേജർ റാങ്കിലുള്ള വ്യക്തിയായിരിക്കണം തർക്ക പരിഹാര കമ്മറ്റികളിലോ സാമ്പത്തിക കമ്മറ്റികളിലോ ഇദ്ദേഹം അംഗമായിരിക്കരുത് വിജിലൻസ് കേസുകളോ അനുബന്ധ നടപടികളോ ചുമത്തപ്പെട്ടവർക്ക് ഈ പദവിയിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യത ഉണ്ടായിരിക്കില്ല എക്സിക്യുട്ടീവ് തല സമിതിയായിരിക്കും സി സി ഒ യെ തെരഞ്ഞെടുക്കുന്നത്

മാർക്ക് ഷീറ്റ് അധിഷ്ഠിത പഠന രീതിയിൽ നിന്നും അറിവ് അടിസ്ഥാനത്തിലുള്ള പഠനരീതിയിലേയ്ക്കുള്ള വലിയ മാറ്റത്തിന് വിദ്യാഭ്യാസനയം ഉൌന്നൽ നൽകുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു മാർക്ക് ഷീറ്റ് ഇപ്പോൾ ഒരു മാനസിക സമ്മർദ്ദ ഷീറ്റ് ആയി മാറിയിരിക്കുക്യാണ്

പ്രവർത്തനം വിലയിരുത്തൽ സമഗ്രമായ വികസനത്തിനുള്ള പരിജ്ഞാനം വിശകലനം ചെയ്യൽ എന്നിവയായിരിക്കും നിർണയ കേന്ദ്രത്തിന്റെ ചുമതലകൾ

കേന്ദ്ര വാണിജൃ മന്ത്രി പീയൂഷ് ഗോയൽ ആണ് ഡൽഹിയിൽ റാങ്കിംഗ് പ്രഖ്യാപിച്ചത് അതിനുതന സംരംഭങ്ങളുടെ ആശയങ്ങൾ പ്രോത്സാഹിപ്പിച്ചതിലൂടെയാണ് സംസ്ഥാനങ്ങൾ മുന്നിലെത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു